പ്രവാസികൾ അനുഭവിക്കുന്ന് പ്രശ്ന്ങൾ പരിഹരിക്കുന്നിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

സ്വർണവില സർവ്വകാല റെക്കോഡിൽ

ൾ ൽ ൾ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിജയത്തെ അടിസ്ഥാന മാക്കിയാണ് രാജ്യത്തിന്റെ വളർച്ചയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു നവീനത പാറ്റൻന്റ് ഉൽപ്പാദനം അഭിവൃദ്ധി എന്നീ നാല് ഘട്ടങ്ങൾ രാജ്യത്ത് അതിവേഗ വികസനത്തിലേക്ക് നയി ക്കുന്നതിന് ശാസ്ത്രജ്ഞർ പിന്തുടരണമെന്ന് അദ്ദേഹം ആവശ്യ പ്പെട്ടു

ശ്രമിക്കുന്നത് ജൈവ ഇന്ധന എഥനോൾ ഉദ്പാദന മേഖലയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വൻ അവസ രങ്ങൾ ഉണ്ടെന്നും മോദി അഭിപ്രായപ്പെട്ടു പ്രകൃതിയും മണ്ണും ജലവും സംരക്ഷിക്കുന്നതിന് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്പാസ്റ്റിക് നിരോധിക്കാൻ രാജ്യം തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രധാന മന്ത്രി പറഞ്ഞു

ഈ നേട്ടത്തിന് അദ്ദേഹം ശാസ്ത്രജ്ഞരെ അഭി നന്ദിച്ചു

ഇറാൻ രഹസ്യസേനാ വിഭാഗം തലവൻ മേജർ ജനറൽ കാസെം സുലൈമാനി യു എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു യു എസ് പ്രഡിഡണ്ട് ഡോണാൾഡ് ട്രംപിന്റെ ഉത്തരവ് അനുസരിച്ച് ഇന്നു പുലർച്ചെ ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നട ത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് സുലൈമാനി ഉൾപ്പെടെ എട്ട് പേർ കൊല്ലപ്പെട്ടത് ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇറാഖിലെ ശക്തമായ അർദ്ധസൈനിക വിഭാഗം ഡെപ്യൂട്ടി കമാൻഡർ അബു മഹ്ദി അൽ മുഹന്ദിസും കൊല്ലപ്പെട്ടവരിൽപ്പെ ടുന്നു വിദേശത്തെ അമേരിക്കൻ പൌരൻമാരെ സംരക്ഷിക്കുന്നതിന് നിർണായക നടപടിയാണിതെന്ന് പെന്റഗൺ വാഷിംങ്ടണിൽ അറിയിച്ചു ഇറാഖിലെയും മേഖലയിലെയും അമേരിക്കൻ നയ തന്ത്ര ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ട് ജനറൽ സുലൈമാനി പദ്ധതി തയ്യാറാക്കി വരികയായിരുന്നുവെന്ന് പെന്റഗൺ ആരോപി ച്ചു

ഇതിന്റെ പ്രത്യാഘാതങ്ങൾക്ക് അമേരിക്ക ഉത്തരവാദിയായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു ബാഗ്ദാദിലെ യു എസ് എംബസിക്കു നേരെ പ്രതിഷേധ ക്കാർ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേ രിക്കയുടെ വ്യോമാക്രമണം സുലൈമാനി എംബസിക്ക് എതി രായ ആക്രമണത്തെ അനുകൂലിച്ചിരുന്നതായി പെന്റഗൺ പറഞ്ഞു

ഇറാന്റെ എണ്ണക്കയറ്റുമതി തടയുന്നതിന് അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ഉണ്ടായി ലോക കേരള സഭ ജനാധിപതൃത്തെ ശക്തിപ്പെടുത്തുന്നതാ ണെന്നും ഇതിൽ നിന്നും പ്രതിപക്ഷം വിട്ടു നിന്നത് തെറ്റായ സന്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറ ഞ്ഞു പ്രതിപക്ഷ നേതാക്കളും എം എൽ എ മാരും തീരുമാനം തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു പ്രവാസികളുടെ വിവാഹ രജിസ്ട്രേഷൻ വസ്തു കൈമാറ്റം നിക്ഷേപം കുട്ടികളെ ദത്തെടുക്കൽ തുടങ്ങി പ്രവാസികൾ അനു ഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ലോക കേരളസഭയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കു കയായിരുന്നു മുഖ്യമന്ത്രി ആർ സമ്മർദ്ദം ചെലുത്തിയാലും നിയമം വിട്ട് പ്രവർത്തിക്ക രുതെന്നും സർവ്വകലാശാല നിയമങ്ങൾ പാലിക്കണമെന്നും വൈസ് ചാൻസലർമാർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദേശം നൽകി വി സി മാർക്ക് മുകളിൽ ഇപ്പോൾ അമിത സമ്മർദമാണ് ഉള്ളതെന്നും അദ്ദേഹം എം ജി സർവ്വകലാശാല യിൽ പറഞ്ഞു അതേസമയം ഗവർണർക്കെതിരെ കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചു ഗവർണർക്കു നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ പൊലീസ് അറസ്റ്റു ചെയ്ത് നീക്കി സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പദവിയുടെ അന്തസ്സിനും ഔചിതൃ മരൃാദകൾക്കും നിരക്കാത്ത പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് അദ്ദേഹം വഹിക്കുന്ന പദവിക്ക് തീരാകളങ്കമാണെന്ന് കോൺഗ്രസ്സ് നേതാവ് വി

സുധീരൻ പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കണമെന്ന സംസ്ഥാന നിയമസഭയുടെ പ്രമേയത്തിന് ഭരണഘടനാപരമായ സാധുതയില്ലെന്ന പുത്തൻ വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് വന്ന ഗവർണർ കേന്ദ്രഗവൺമെന്റിനെ വെള്ളപൂശാനുള്ള വൃഗ്രതയിൽ പാർലമെന്ററി തത്വങ്ങൾ വിസ് മരിച്ചിരി ക്കുകയാണെന്ന് സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു

നാഗ്പൂരിൽ നിന്നും അങ്കമാലിയിലെ ഗോഡൌണിലെത്തിച്ചു സ് ഫോടക വസ്തുക്കൾ ഇന്ന് രാവിലെയാണ് മരടിലെത്തിച്ചത് സ്ഫോടക വസ്തുക്കൾ നിറക്കുന്നതിന് സുഷിര ങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായി കളക്ടറുടെ അനുമതി ലഭിച്ചാലുടൻ സുഷിരങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കും ഫ്ളാറ്റിന്റെ സമീപത്തു കൂടി കടന്നുപോകുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പൈപ്പ് ലൈൻ സുരക്ഷിതമാക്കുന്നതിന് നടപടി പുരോഗമിക്കുകയാണ് അതിനിടെ മരട് ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേരാനിരുന്ന സാങ്കേതിക സമിതി യോഗം നാളെത്തേക്ക് മാറ്റി

ജനവാസം കുറഞ്ഞ് മേഖലയിലെ ഫ്ളാറ്റുകൾ പൊളിച്ച് പ്രത്യാഘാതങ്ങൾ പഠിച്ച ശേഷമെ മറ്റ് ഫ്ളാറ്റുകൾ പൊളിക്കാവൂ എന്ന് സമരസമിതി ഇന്നലെ മന്ത്രി എ സി മൊയ്തീനുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു

ഡി എഫ് നേതൃയോഗം ്കൊച്ചിയിൽ പുരോഗമിക്കുക യാണ് പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ തുടർ സമരപരിപാടി കൾ കുട്ടനാട് പൊതു തെർഞ്ഞെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്യും കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് മേഖലാ റാലികളുടെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തും പൌരത്യ നിയമഭേദഗതിയിൽ സിപിഐഎമ്മുമായി യോജിച്ചു സമരത്തിനില്ലെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമച ന്ദ്രൻ ആവർത്തിച്ച് വൃക്തമാക്കി ഫാസിസത്തിനെതിരായ സമര ത്തിൽ ഇതുവരെ ഇളകാത്ത തീരുമാനമായി മുന്നോട്ട് പോയത് കോൺഗ്രസ് മാത്രമാണെന്ന് അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു കൂട്ടായ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കേണ്ടെന്ന് യു ഡി എഫ് ഒന്നിച്ചെടുത്ത തീരുമാനമാണെന്ന് മുസ്ലീം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കൊച്ചിയിൽ അറിയിച്ചു സ്വർണവില സർവ്വകാല റെക്കോഡിൽ

ദേശീയ അന്തർ സർവ്വകലാശാല അത്ലറ്റിക് മീറ്റിൽ രണ്ടാം ദിവസം ആദ്യ സ്വർണം മാംഗ്ലൂർ സർവ്വകലാശാലയിലെ മലയാ ളിയായ ജുനൈദിന്

മാംഗ്ലൂർ സർവ്വകലാശാലയിലെ തന്നെ നവീൻ രണ്ടാം സ്ഥാനം നേടി സംസ്ഥാനത്തെ മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകളിലും പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല സർഗോത്സവം കലാമേള നാളെ കോഴിക്കോട്ട് ആരംഭിക്കും മറ്റന്നാൾ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച സമാപിക്കും

കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ ആഭിമുഖൃത്തിൽ നാളെ മുതൽ അന്ധക്ഷേമ പക്ഷാചരണത്തിന് തുടക്കം കുറിക്കും ബ്രയിൽ ലിപി കണ്ടു പിടിച്ച് ലൂയി ബ്രയിലിന്റെ ജന്മദിനമായ നാളെ സംസ്ഥാനത്ത് സമ്മേളനങ്ങളും സെമിനാറുകളും നടക്കും ഈ രണ്ടാഴ്ച കാലം ബ്രയിൽ ഡെമോൺസ്ട്രേഷൻ കാഴ്ച പരിമിതർക്കു വേണ്ടി കായിക കലാമത്സരങ്ങൾ സംഘടിപ്പിക്കും വിവിധ ക്ഷേമ പദ്ധ തികളും നടപ്പിലാക്കും കണ്ണൂരിൽ കർഷക തൊഴിലാളി യൂണിയൻ അഖിലേന്ത്യാ സമ്മേളനം വൈകീട്ട് സമാപിക്കും മുഖ്യമന്ത്രി പിണറായി വിജ യൻ സമാപന റാലി ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ തൊഴിലു റപ്പ് പദ്ധതി കാര്യക്ഷമമാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സമാപന റാലിയെ തുടർന്ന് കണ്ണൂർ നഗരത്തിൽ ഗതാഗത നിയ ന്ത്രണം ഏർപ്പെടുത്തി

അയൽ രാജ്യങ്ങളിൽ നിന്നും പീഡനങ്ങളേറ്റ് ഇന്ത്യയിലെത്തി ജീവിക്കുന്നവരോട് കാണിക്കുന്ന കാരുണ്യമാണ് പൌരത്വനിയമഭേദഗതിയെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി അബ്ദുല്ലക്കുട്ടി പറഞ്ഞു മുക്കത്ത് ബി ജെ പി സംഘടിപ്പിച്ച ദേശഭക്തി സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയെ പോലെ മത സ്വാതന്ത്ര്യം നൽകുന്ന രാജ്യം ലോകത്ത് വേറെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് ബേക്കലിൽ നിർത്തിയിട്ട കാറിൽ കേന്ദ്ര ഇന്റലി ജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്റ ലിജൻസ് ബ്യൂറോ ഇൻസ്പെക്ടർ റിജോ ഫ്രാൻസിസ് ആണ് മരിച്ചത്

സൈബർപാർക്കിലാണ് ഡോം പ്രവർത്തിക്കുന്നത് ആൾക്കൂട്ട ത്തിൽ നിന്ന് ഡ്രോൺ കൃാമറ ഉപയോഗിച്ച് കുറ്റവാളികളെ തിരി ച്ചറിയാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ സൈബർഡോം വികസി പ്പിച്ചിട്ടുണ്ട് ശബരിമലയിൽ അടുത്ത ദിവസം ക്യാമറയുടെ പ്രവർത്തനം പരീക്ഷിക്കും

ഇതോടെ സേവനങ്ങൾക്ക് നില വിലുണ്ടായിരുന്ന മറ്റ് നമ്പറുകൾ ഇല്ലാതായി

ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് വാടാനപ്പള്ളി സ്വദേശി സുഹൈലിന്റെ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു നിലയിൽ പണം കണ്ടെത്തിയത് നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണിയാൾ വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണമാരംഭിച്ചു